ത്സാർഖണ്ഡിൽ നാളെ നടക്കുന്ന രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ത്രിദിന സമ്മേളനം ഇന്ന് പൂനെയിൽ ആരംഭിക്കും

കിഴക്കൻ സിംഗ്ബം പടിഞ്ഞാറൻ സിംഗ്ബം സറയ്കേല ഖർസാവൻ റാഞ്ചി കുന്തി ഗുമ്ല സിംദേഗ ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

തെരഞ്ഞെടുപ്പിനായി വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജാർഖണ്ഡ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനയ് കുമാർ ചൌബെ ആകാശവാണിയോട് പറഞ്ഞു

ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിലെ ചെറിയ തകരാറ് വോട്ടെടുപ്പ് ത്ട്സ്സപ്പെടുത്തി

മീക്കു പോളിങ് ബൂത്തുകളിലും വോട്ടർ സൌഹൃദ സേവനങ്ങൾ ഒരുക്കിയിരുന്നു മുതിർന്നവരെയും ഭിന്നശേഷിക്കാരെയും സഹായിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ നിയോഗിച്ചു

സി രാമമൂർത്തി ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ്സിൽ നിന്ന് രാജിവച്ച അദ്ദേഹം അടുത്തിടെ രാജ്യസഭാ എം

മുൻ ഐ

എസ് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം കഴിഞ്ഞ ഒക്ടോബറിലാണ് ബിജെപി യിൽ ചേർന്നത് ആവശ്യത്തിന് അംഗബലം ഇല്ലാത്തതിനാൽ കോൺഗ്രസ്സും ജെഡി എസും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല സാങ്കേതിക കാരണങ്ങളാൽ രണ്ട് സ്വതന്ത്രർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരുന്നു

രാമമൂർത്തിയെ അഭിനന്ദിച്ച കർണ്ണാടക മുഖ്യമന്ത്രി ബി എസ് യെഡിയൂരപ്പ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലെ ബിജെപിയുടെ അംഗബലം വർദ്ധിക്കാൻ സഹായിച്ചതായി അറിയിച്ചു

ഉച്ചയ്ക്ക് സിരോഹി ജില്ലയിലെ അബുറോഡിൽ എത്തുന്ന അദ്ദേഹം സാമൂഹ്യ പരിവർത്തനത്തിനായി വനിതകളുടെ ശാക്തീകരണം എന്ന വിഷയത്തിലുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

നാളെ ജോധ്പൂരിൽ എത്തുന്ന രാഷ്ട്രപതി എയിംസിന്റെ രണ്ടാമത് ബിരുദദാനചടങ്ങിൽ പങ്കെടുക്കും രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പുതിയ മന്ദിരവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

റിസർവ് ബാങ്കിനെതിരെ ഉന്നയിച്ചിരിക്കൂന്നു ആരോപണങ്ങൾ അവ്യക്തമാണെന്നും എല്ലാവരുടെയുട്ട് ക്ഷേമം മുൻനിർത്തിയുള്ള ഉചിതമായ തീരുമാനമാണ് ആർ

അക്കൌണ്ട് ഉടമകൾക്ക് പിൻവലിക്ക്ാവുന്ന തുക ആദ്യം നിശ്ചയിച്ചിരുന്ന ആയിരം രൂപയിൽ നിന്ന് അൻപ്തിനായിരം രൂപയാക്കിയിട്ടുണ്ട്

പാർലമെന്റ് മന്ദിര വളപ്പിൽ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിക്കും

അംബേദ്കറുടെ സംഭാവന ചർച്ച ചെയ്യാൻ രാജ്യത്താകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

വ്യാവസായിക മേഖലകളിൽ പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താൻ അധികൃതരോടും സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം ജനങ്ങളോടും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്

അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു നടപടി റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിയോട് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു

ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ ന്യൂഡൽഹിയിലെ സഫ്ദർ ജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്ഗദ്ധ ചികിൽസയ്ക്കായി എയർ ആംബുലൻസിലാണ് പെൺകുട്ടിയെ ലഖ്നൌവിൽ നിന്ന് ന്യൂഡൽഹിയിൽ എത്തിച്ചത്

ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ ഗ്രാമത്തിലെ പാടത്ത് വച്ച് പ്പെൺകുട്ടിയെ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പോലീസിങ്ങിനൊപ്പം ശാസ്ത്രീയവും ഫോറൻസിക് അടിസ്ഥാനമാക്കിയതുമായ പോലീസിങ് എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാകൃം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേധാവികൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ആഭ്യന്തര സുരക്ഷ കുറ്റകൃത്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ സമ്മേളനത്തിൽ ചർച്ചയാവും

വനിതകളോട് അനുഭാവപൂർവ്വം പെരുമാറാൻ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും വനിതകൾക്ക് നിയമസഹായവും കൌൺസിലിങും അഭയവും പുനരധിവാസവും പരിശീലനവും നൽകുന്നതിനായി ഹെൽപ്പ് ഡെസ്കുകളിൽ അഭിഭാഷകരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും ഗവൺമെന്റിതര സംഘടനകളുടെയും സേവനം ലഭ്യമാക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശ്രീലങ്കയുടെ കൈവൾമുള്ള ഇന്ത്യൻ മൽസ്യത്തൊഴിലാളികളെയും ബോട്ടുക്കളും മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രജപക്സ് ഉർപ്പുനൽകിയതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രേഖ്യാമൂല്പം രാജ്യസഭയിൽ അറിയിച്ചു ഇന്ത്യൻ മൽസ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് മുന്തിയ പരിഗണന നൽകുന്നു എന്ന് അദ്ദേഹം പ്രിറഞ്ഞു

മുരളീധരൻ പറഞ്ഞു

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്കു ശേഷം രണ്ട് കരാറുകളിൽ ഒപ്പിട്ടു

വികസന പങ്കാളിത്തം ശേഷി വർദ്ധന വ്യാപാരം വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഇരുമന്ത്രിമാരും ചർച്ച ചെയ്തതായി വിദേശ കാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

സ്പെയിനിലെ കാനറി ദ്വീപിലേക്ക് പോവുകയായിരുന്ന ബോട്ട് പാറയിൽ ഇടിച്ചായിരുന്നു അപകടം സ്പെയിനിലേക്ക് കുടിയേറാൻ ശ്രമിക്കുകയായിരുന്ന ഗാംബിയൻ അഭയാർത്ഥികളാണ് ഇവരിൽ ഭൂരിഭാഗവുമെന്ന് മൌറിറ്റാനിയയുടെ ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു

മഹേന്ദ്രനാഥ് പാണ്ഡെ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ബോധവത്ക്കരണം നടത്താൻ ഉദ്ദേശിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം